രണ്ടാംഘട്ട റാങ്കിംഗ് നിതി ആയോഗ് ഇന്ന് പുറത്തിറക്കും

മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പുനപരിശോധിച്ചു

മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ

ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയാവശ്യപ്പെട്ട് റ്റി ഡി

അംഗങ്ങളും കമ്പ്യൂട്ടറുകൾ പരിശോധിക്കാൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അനുമതി നൽകിയതിനെതിരെ റ്റി

റഫേൽ കരാർ കാവേരി നദിയ്ക്കു കുറുകെ നിർമ്മിക്കുന്ന മെക്കാഡു അണക്കെട്ട് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നീ വിഷയങ്ങൾ ലോക്സഭയിലും ബഹളത്തിനു കാരണമായി ഇതേ തുടർന്ന് സഭ ഉച്ചവരെ നിർത്തിവച്ചിരിക്കുകയാണ്

പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുത്തലാഖ് ബിൽ ലിംഗസമത്വം ഉറപ്പുവരുത്തുമെന്ന് ശ്രീ

അതേസമയം ബിൽ പാസ്സാക്കാനുള്ള കേന്ദ്രഗവൺമെന്റ് നടപടിയെ രാഷ്ട്രീയവൽക്കരിക്കാതെ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് വിവിധ രാഷ്ട്രീയകക്ഷികൾ പങ്കെടുക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി നരേന്ദ്രസിങ് തോമർ ആവശ്യപ്പെട്ടു

മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി

ഗവൺമെന്റിന്റെ ന്ട്ടങ്ങൾ പ്രതിപാദിക്കുന്ന വികസനരേഖ പ്രധാനമന്ത്രി പ്രടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു കാൺഗ്ര ജില്ലയിലെ ധരം ശാലയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സംസ്ഥാന്ന് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ആശയ വിനിമയം നടത്തും

പരിശോധനയുടെ ഭാഗമായി ഓഹരി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ നിരോധിക്കാനുള്ള തീരുമാനമെടുത്തു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഇടപാടുകൾ സുതാര്യവും വിവേചനരഹിതവുമാകാൻ ഓഹരി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഇടപാടു നടത്തിയവർക്ക് പണം തിരികെ ലഭ്യമാക്കാനുള്ള തീരുമാനവും മന്ത്രാലയം കൈക്കൊണ്ടിട്ടുണ്ട്

ഉപഭോക്താക്കൾക്ക് വാണിജ്യകമ്പനികൾ നൽകുന്ന ഉയർന്ന ഇളവുകളെ ചോദ്യം ചെയ്ത ആഭ്യന്തര ഇടപാടുകാരുടെ നടപടിയിന്മേലാണ് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടത്

ഉത്തർപ്രദേശിൽ കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ മുസാഫർനഗർ തണുപ്പ് കൂടിയ പ്രദേശമായി മാറി

ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ സുവർണ്ണ ജൂബിലി വർഷത്തിലാണ് ഈ സന്ദർശനം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും

അടൽ ഭാഷാന്തർ യോജന എന്ന പദ്ധതിയിലൂടെ ഭാഷാ വിദഗ്ധരെ ഈ രീതി പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഗവൺമെന്റ് ചിലവിൽ വിദേശത്തെ സ്കൂളുകളിൽ ഭാഷാ നടത്താമെന്ന് വിദേശകാര്യമന്ത്രാലയം വിശദമാക്കി പഠനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇവരെ മന്ത്രാലയത്തിൽ അഞ്ച് വർഷം കാലാവധിയിൽ പ്രത്യേക വ്യാഖ്യാതാക്കൾ എന്ന പദവിയിൽ നിയമിക്കും

ഇതിനായി വ്യക്തിഗത വിവരശേഖര സർവേ എന്ന രീതിയാണ് ആർബിഐ നടപ്പാക്കുന്നത്

മുംബൈ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ബംഗലുരു ഗുവാഹട്ടി എന്നീ നഗരങ്ങളിലാണ് സർവേ നടത്തുന്നത്

ചേതേശ്വർ പൂജാര നേടിയ സെഞ്ചുറിയാണ് ഇന്തൃയ്ക്ക് തുണയായത്

പൂജാരയെ പാറ്റ് കമ്മിൻസും കോഹ്ലിയെ സ്റ്റാർക്കുമാണ് മടക്കിയത്

ലിയോണിൽ നിന്നാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ താരതമ്യേന കൂടുതൽ റൺസെടുത്തത് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നലെ അരങ്ങേറ്റം കുറിച്ച ഓപ്പണർ മായങ്ക് അഗർവാൾ അർധ സെഞ്ചുറി നേടിയിരുന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകണം പ്രിസൈഡിംഗ് ഓഫീസർമാരായിരിക്കും പുകയില മുക്ത ബൂത്തിന്റെ നോഡൽ ഓഫീസർമാരായി പ്രവർത്തിക്കുക

ഏതു കമ്പ്യൂട്ടറും പരിശോധിക്കാൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അനുവാദം നൽകിയ ഗവൺമെന്റ് നടപടിയെ ചോദ്യം ചെയ്ത കോൺഗ്രസിനോട് ഇത് വേറെ ഏതു രീതിയിൽ കണ്ടെത്താനാകുമായിരുന്നെന്ന് ശ്രീ

ദേശീയ സുരക്ഷയും അഖണ്ഡതയുമാണ് പരമ പ്രധാനമെന്ന് ട്വീറ്റ് ചെയ്ത ജെയ്റ്റ്ലി ശക്തമായ ജനാധിപത്യ രാജ്യത്താണ് ജീവനും വ്യക്തിസ്വാതന്ത്ര്യവും നിലനിൽക്കുകയെന്നും വിശദമാക്കി

അഗ്നിപർവ്വതത്തിന്റെ അഞ്ച് കി മീ

കൂടിക്കാഴ്ചയ്ക്ക് പകരം ഫോൺ സംഭാഷണം നടത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾപറഞ്ഞു

ഐ മുൻ ഗുപ്പർണർ ബിമൽ ജലാൻ അദ്ധ്യക്ഷനായി റിസർവ്വ് ബാങ്ക് വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു

ബാങ്കുകളുടെ കരുതൽ ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമിതി പരിഗണിക്കും